ജില്ലകളിൽ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം

വാർത്തകൾ വിശദമായി കാർഷിക അടിസ്ഥാന സൌകര്യ നിധിയിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ധനസഹായ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും

ഒരു ലക്ഷം കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന മേഖലാ നിധി വിളവെടുപ്പിന് ശേഷം സംഭരണം സംസ്കരണം സാമൂഹ്യ ക്യ്ഷി എന്നിവയ്ക്ക് പ്രോത്സാഹനമാകും

മൂന്ന് ശതമാനം പലിശയിളവും രണ്ട് കോടി രൂപയ്ക്കുവരെ വായ്പാ ഗ്യാരണ്ടിയും കർഷകർക്ക് പദ്ധതിയിൽ ലഭിക്കും രുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപകമായി ഒരാഴ്ചത്തെ മാലിന്യ മുക്ത ഇന്ത്യ പ്രചാരണ പരിപാടി പ്രഖ്യാപിച്ചു

ശുചിത്വം പാലിക്കാൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കാനാണ് ദേശീയ സ്വച്ഛതാ കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്വച്ഛ് ഭാരത് അഭിയാൻ സാധാരണക്കാരന്റെ ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു രുമ കാലവർഷം കനത്തോടെ എല്ലാ ജില്ലകളിലും കൂടുതൽ ജാഗ്രത പുലർത്താൻ ഗവൺമെന്റ് നിർദ്ദേശം നൽകി വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാൻ ജില്ലാ അധികൃതർക്ക് നിർദ്ദേശമുണ്ട്

കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി

കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

ജില്ലയിലെ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയർന്നതിനാൽ വെള്ളപ്പൊക്ക സാധ്യതാ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ നടപടി പുരോഗമിക്കുകയാണ്

കക്കയം ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്ന് വിടുന്ന സാഹചര്യത്തിൽ കുറ്റ്യാടി പുഴയിലെ ജലനിരപ്പ് മൂന്നടിയോളം ഉയരാൻ സാധ്യതയുണ്ടെന്നും തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി

മുരളീധരൻ മന്ത്രി കെ രാജു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇന്ന് സന്ദർശനം നടത്തും ഉരുൾപൊട്ടലിൽ കാണാതായവർക്കു വേണ്ടി മൂന്നാം ദിവസമായ ഇന്നും തെരച്ചിൽ തുടരും കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

രണ്ടടി കൂടി വെള്ളം ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്താൻ തേനി ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് രുര കാസർകോട് ജില്ലയിലെ പല മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്

ജഗന്നിവാസൻ

ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു

കരിപ്പുഴ സ്വദേശി ആനന്ദൻ വടക്കനാര്യാട് മൂന്ന് വയസ്സുകാരൻ നേതൽ എന്നിവരാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്

സി കനാലിലേക്ക് വീണ വേഴപ്ര സ്വദേശിനി സരസ്വതിയെ കാണാതായി രുമ കേരളത്തെയും കർണ്ണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരിട്ടി മാക്കൂട്ടം ചുരം റോഡ് തുറന്നു നാലു മാസമായി കുടക് ജില്ലാ ഭരണകൂടം മണ്ണിട്ട് അടച്ച റോഡ് ഇന്നലെ രാത്രിയാണ് തുറന്നത് കൂട്ടുപുഴ പാലത്തിന് സമീപത്തെ മണ്ണ് നീക്കി

ദരദ വയനാട് ജില്ലയിൽ പലയിടത്തും ഉരുൾപൊട്ടൽ ഭീഷണി നിലവിലുണ്ടെന്ന് മന്ത്രി ടി

രുമ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെത്തുടർന്നും ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം പരിഗണിച്ചും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘം ചാലക്കുടിയിലെത്തി അഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ചാലക്കുടിയിൽ അടിയന്തര സേവനത്തിന് എത്തിയത് രുര മലമ്പുഴ ഡാമിൽ നിന്ന് നിയന്ത്രിതമായ അളവിൽ ഇന്ന് വെള്ളം തുറന്ന് വിടാൻ സാധ്യതയുണ്ടെന്ന് എക്സിക്യുട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു

രുമ കണ്ണൂർ പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തി കോവിഡ് സമ്പർക്ക വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി രുമ കരിപ്പൂർ വിമാനാപകടത്തിൽ മരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് ദീപക് വസന്ത് സാത്തേയുടെ മൃതദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് സ്വദേശമായ മുംബൈയിലേക്ക് കൊണ്ടുപോകും മരിച്ച സഹപൈലറ്റ് അഖിലേഷ് കുമാറിന്റെ മൃതദേഹം ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് ജന്മനാടായ ഉത്തർപ്രദേശിലെ മഥുരയിലേയ്ക്ക് കൊണ്ടുപോയിരുന്നു

പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാനും ബന്ധുക്കൾക്ക് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി നൽകാനും മറ്റ് സഹായങ്ങൾക്കുമാണ് സംവിധാനം ഏർപ്പെടുത്തിയത് രുദ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ ദേശസ്നേഹ ചലച്ചിത്രോത്സവം ആരംഭിച്ചു